ജലീൽ കേന്ദ്രമന്ത്രിയെ കാണും കാസർകോട് ജില്ലാ ഭരണകൂടം എഫ്

കോടതി വിധിക്കെതിരെ വിശ്വാസികളെ അണിനിരത്താനാണ് ശ്രമം നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് ഇ

ഇത്തരം യാഥാസ്ഥിക നിലപാടുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീക രിക്കണ മെന്ന് മുഖ്യ മന്ത്രി ആവ ശ്യ ഉപ്പിട്ടു സംസ്ഥാ നത്ത് അരാജകത്വം സൃഷ്ടിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് ചിലർ ശ്രമിക്കു ന്നതെന്ന് മുഖ്യമന്ത്രി വിലയിരുത്തി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനും ശ്രമം നടക്കുന്നതായി മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു

ഐ എം വിശാസി കൾക്കെതിരല്ലെന്നും കേരളീയ സമൂഹത്തെ ഇന്നത്തെ നിലയിൽ ഉയർത്തി കൊണ്ടുവന്നതിൽ ഇടതുപക്ഷങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു

പാരിസ്ഥി തിക പ്രശ്നത്തിന്റെ പേരിൽ വികസനം തടസ്സപ്പെടുത്തുന്ന നിലപാട് ശരി യ ല്ല

സെക്ര ട്ട റി യേ റ്റി നു മു ന്നിൽ ബിജെപി സംഘടിപ്പിച്ച അനിശ്ചിതകാല നിരാഹാര സമരം വൻ വിജയമായിരുന്നുവെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻപിള്ള പറഞ്ഞു ഭക്തജനങ്ങ ളുടെ വിശ്വാസ സംരക്ഷണത്തിനുവേണ്ടിയാണ് ബിജെപി സമരം ആരം ഭിച്ചത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ വിഷയം ചർച്ചയാക്കാൻ സാധിച്ചിട്ടുണ്ട്

ശബരിമലയിലെ ആചാരസംരക്ഷണത്തിനുവേണ്ടിയുള്ള ബിജെപി യുടെ സമരം തുടരുമെന്ന് പാർട്ടി ദേശീയ സമിതി അംഗം പി

ശബരിമല ആചാരത്തെയും വിശ്വാസത്തെയും തകർക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രിയുടെയും സി

എം ന്റെയും നിലപാടുകളെ ബഹുജനസമക്ഷം അവതരിപ്പിക്കാൻ സമരംകൊണ്ട് സാധിച്ചതായി പി

കൃഷ്ണദാസ് അവകാശപ്പെട്ടു ശബരിമല വിഷയത്തിൽ സംസ്ഥാന് ഗവൺമെന്റിനെതിരായ പ്രക്ഷോഭം ജനങ്ങൾ ഏറ്റെടുത്താണെന്ന് ബിജെപി സംസ്ഥാന ജന റൽ സെക്രട്ടറി എ

വിശ്വാസി സമൂഹം നിരീശ്വര വാദികൾക്കെതിരെ നടത്തിയ സ്മരത്തിന് ബിജെപി പിന്തുണ നൽകുകയാണ് ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയെ തകർക്കാൻ ശ്രമം നടത്തിയെന്നും ഇതിന് ആരൊക്കെയുമായി ബന്ധപ്പെ ട്ടെന്ന കാര്യം വ്യക്തമാക്കണ്മെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവ ശ്യപ്പെട്ടു ശബരിമല വിഷയം ർമ്യമായി പരിഹരിക്കണമെന്ന് പന്തളം രാജ കുടുംബ പ്രതിനിധി ശശികുമാര വർമ പറഞ്ഞു വിഷയത്തിൽ ഏത് ചർച്ചയ്ക്കും തയാറാണ് മുഖ്യമന്ത്രി നേരിട്ട് പ്രശ്ന പരിഹാരത്തിന് ശ്രമി ക്കണമെന്ന് അദ്ദേഹം സന്നിധാനത്ത് വ്യക്തമാക്കി

പത്മകുമാർ പറഞ്ഞു

ഇക്കാരൃത്തിൽ രാഷ്ട്രീയം കളിക്കാൻ ദേവസ്വം ബോർഡോ ഗവൺമെന്റോ ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം സ്ഥകാരൃ ചാനലിനോട് പറഞ്ഞു

രാവിലെ പന്തളം രാജപ്രതിനിധിയുടെ അയ്യപ്പ ദർശനം നടന്നു ദർശനത്തിന് ശേഷം മേൽശാന്തി നടയടച്ച് താക്കോൽ രാജപ്രതിനിധിയെ ഏൽപിച്ചു ആചാര പ്രകാരം അടുത്ത ഒരു വർഷത്തേയ്ക്ക് പൂജാദി കാര്യങ്ങൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് താക്കോലും പണക്കിഴിയും മേൽശാന്തിയെ ഏൽപിച്ച് തിരുവാഭരണവുമായി രാജപ്രതിനിധി പന്തള ത്തേക്ക് തിരിച്ചു തീർഥാടകരുടെ ദർശനം ഇന്നലെ രാത്രി സമാപിച്ചിരു ന്നു ശബരിമലയിലെ ആചാര വിശ്വാസ സംരക്ഷണം ആവശ്യപ്പെട്ട് ശബ രിമല കർമസമിതി ഇന്ന് വൈകീട്ട് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന അയ്യപ്പഭക്ത സംഗമം മാതാ അമൃതാനന്ദമയി ഉദ്ഘാട്നം ചെയ്യും പുത്ത രിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന സംഗമത്തിൽ പ്രമുഖ ആധ്യാത്മിക നേതാക്കൾ പങ്കെടുക്കും കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി അധ്യക്ഷനായിരിക്കും

അയ്യപ്പഭക്ത സംഗമത്തിൽ മാതാ അമൃതാനന്ദമയി പങ്കെടുക്കുന്നതിനെ സി

എം

വലതുപക്ഷ ഏകീകരണത്തിന്റെ ഭാഗമായാണ് അമൃതാനന്ദ മയി ചടങ്ങിൽ പങ്കെടുക്കുന്നതെന്ന് കോടിയേരി തിരുവനന്തപുരത്ത് പറ ഞ്ഞു

ജലീൽ കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വിയെ കാണും അടുത്ത ഞായറാഴ്ച ഡൽഹിയിലാണ് കൂടിക്കാ ഴ്ച നിലവിൽ ടെൻഡർ പ്രകാരം ആദ്യവിമാനം നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് പുറപ്പെടുന്നത്

ലോക വ്യാപാര സംഘടനയ്ക്കുവേണ്ടി പുതിയ നയരേഖ തയ്യാറാക്കിവരികയാ ണെന്നും ദാവോസിൽ വിവിധ വാണിജ്യ മന്ത്രിമാരുമായി ഇത് ചർച്ച ചെയ്യു മെന്നും സുരേഷ് പ്രഭു ട്വിറ്ററിൽ കുറിച്ചു

റേഡിയോ സ്റ്റേഷൻ ആരംഭിക്കുന്നതിന് നട പടി തുടങ്ങിയതായി ജില്ലാ കലക്ടർ ഡോ

ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസറെ എഫ്

റേഡിയോ പ്രാരംഭ നടപ ടികൾക്ക് രൂപം നൽകാൻ ചുമതലപ്പെടുത്തിയതായി കലക്ടർ പറഞ്ഞു മലയാളത്തിനു പുറമേ കന്നട തുളു തുടങ്ങി കാസർക്കോട് ജില്ലയിലെ മറ്റു ഭാഷകളിലും പരിപാടികൾ അവതരിപ്പിക്കാവുന്ന വിധത്തിലാണ് സ്റ്റേഷൻ ആരംഭിക്കുന്നത്

മന്ത്രി എ

മലയാളത്തിൽനിന്ന് നാല് നാടകങ്ങൾ ഇതിൽപെടും നിർദ്ദിഷ്ട എരുമേലി വിമാനത്താവളത്തിന്റെ ടെക്നോ ഇക്കണോമിക് സാധ്യതാ പഠന റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചതായി റിപ്പോർട്ട് മുഖ്യ മന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് വിമാനത്താവളം നിർമ്മാണം സംബന്ധിച്ച നടപടികൾ ഏകോപിപ്പിക്കുന്നത്

ഇന്നലെ കേരളത്തിന് അഞ്ച് വെങ്കല മെഡൽ ലഭിച്ചു

ഹരിയാനയും ഡൽഹി യുമാണ് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ

കോഴിക്കോട് മെഡിക്കൽകോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിലാണ് മേള മുംബൈ മാരത്തണിൽ എലൈറ്റ് ഇന്ത്യൻ വിഭാഗത്തിൽ മല യാളിതാരം ടി ഗോപിയ്ക്ക് രണ്ടാം സ്ഥാനം ലഭിച്ചു

വിദേശികളുടെ വിഭാഗത്തിൽ കെനിയയുടെ കോസ്മോസ് ലഹാത ഒന്നാം സ്ഥാനം നേടി

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് കൊപ്പം പ്രഭാപുരം സ്കൂളിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കാർഷിക മേള ഇന്ന് സമാപിക്കും സമാപന സമ്മേളനം വൈകീട്ട് മന്ത്രി കെ

പാലക്കാട് ജില്ലയിൽ നാട്ടിലെത്തുന്ന കാട്ടാനകൾക്ക് റേഡിയോ കോളർ ഘടിപ്പിക്കും

കാട്ടാനകളെ തടയാൻ പാലക്കാട്ട് എത്തിച്ച കുങ്കിയാനയുടെ മദപ്പാട് മാറിയതിനെത്തുടർന്നു ഉടൻ പട്രോളിംഗിന് ഇറക്കുമെന്നും അധികൃതർ അറിയിച്ചു അടുത്തിടെ മുണ്ടൂരിൽ ഒരാൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു പ്രവാസികളുടെ സാങ്കേതിക പരിജ്ഞാനം പ്രയോജനപ്പെടുത്തുന്ന തിന് എല്ലാ ജില്ലകളിലും നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ ആരംഭിക്കണ മെന്ന് കോഴിക്കോട് നടന്ന കേരള പ്രവാസി സംഘം സംസ്ഥാന സമ്മേ ളനം ആവശ്യപ്പെട്ടു വിദേശത്ത് ജോലി തേടി പോകുന്നവർക്കും പുനര ധിവാസ പദ്ധതികളിൽ ഏർപ്പെടുന്നവർക്കും ഇത് പ്രയോജനം നൽകുമെന്ന് സമ്മേളനം വൃക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോഴിക്കോട് താലൂ ക്കിൽ പൊതുജനങ്ങൾക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സംവി ധാനം പരിചയപ്പെടുത്തും അടുത്ത വെള്ളിയാഴ്ചവരെയാണ് തിരഞ്ഞെ ടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ ക്യാമ്പയിൻ നടത്തുന്നത് ക്ഷീര കർഷകർക്ക് എല്ലാ പിന്തുണയും നൽകി ഗവൺമെന്റ് ഒപ്പം ഉണ്ടാകുമെന്ന് മന്ത്രി കെ രാജു പറഞ്ഞു